ബിജെപിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടിക ളുടേയും ഐകൃം തെരഞ്ഞെടുപ്പിന് ശേഷം സാധ്യമാകുമെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിയർക്കുമെന്ന് ബിജെപി

എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈ സേഷന്റെ അപ്പീൽ തള്ളിയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയി നേതൃത്വം നൽകുന്ന മൂന്നംഗ ബഞ്ചിന്റെ ഉത്തരവ് ഉയർന്ന പെൻഷൻ ലഭിക്കാൻ യഥാർത്ഥ ശമ്പളത്തിന് ആനുപാതികമായി കൂടിയ വിഹിതം അടക്കാൻ തൊഴിലാളിക്ക് അർഹതയുണ്ടെന്നും കോടതി വൃക്തമാ ക്കി

പെൻഷന് ഓപ്ഷൻ നൽകാൻ കട്ട് ഓഫ് തീയതി ഉണ്ടാകില്ലെന്ന് കോടതി വൃക്തമാക്കി

ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണവും മയക്കുമരുന്നുകളും പിടിച്ചെടുത്തതെന്ന് കമ്മീ ഷൻ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു

രാജ്യതാൽപര്യം മുൻനിർത്തി ബിജെപിയെ പരാജയപ്പെടുത്താൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടേയും ഐക്യം തെരഞ്ഞെടുപ്പിന് ശേഷം സാധ്യമാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തി ജനാധിപത്യ ത്തേയും ഭരണഘടനയേയും സംരക്ഷിക്കുയാണ് പ്രഥമ ദൌത്യമെന്ന് പിടിഐ ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വൃക്തമാക്കി

മതത്തിന്റേയും സംസ്കാരത്തിന്റേയും പേരിൽ നരേ ന്ദ്രമോദി രാജ്യത്തെ വിഭജിക്കുകയാണെന്നും ജനാധിപത്യത്തെ അപ മാനിക്കുകയാണെന്നും കോൺഗ്രസ് വക്തവാവ് രൺദീപ് സുർജെ വാല ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വ വുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് പ്രധാനമന്ത്രി രാജ്യത്തോടും വയനാട്ടിലെ ജനങ്ങളോടും മാപ്പ് പറയണമെന്നും കോൺഗ്രസ് വക്താവ് ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു

വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിയർക്കു മെന്ന് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ബിജെപി ജനറൽ സെക്രട്ടറി വി മുരളീധര റാവു പറഞ്ഞു പോരാട്ടം കനത്തതായിരി ക്കുമെന്നും എളുപ്പത്തിൽ അദ്ദേഹത്തിന് ജയിച്ച് കയറാനാകില്ലെന്നും അദ്ദേഹം ടിറ്ററിൽ അറിയിച്ചു ജനാധിപത്യത്തിനും കേരള രാഷ്ട്രീ യത്തിനും ഉദ്ദേകജനകമായ നാളുകളാണ് വരാനിരിക്കുന്നതെന്ന് മുരളീധര റാവു പറഞ്ഞു കോൺഗ്രസ് അവരുടെ മുഖ്യശത്രുവാണെന്ന് പറയുന്ന ബിജെ പിയെ തോൽപ്പിക്കുന്നതിനു പകരം ഇടതുമുന്നണിയെ പരാജയപ്പെ ടുത്താൻ കേരളത്തിൽ അവരുമായി രഹസ്യ ധാരണ ഉണ്ടാക്കുക യാണോ എന്ന് വ്യക്തമാക്കണമെന്ന് സിപിഐഎം ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ മതേതര ജനാധിപത്യ സഖ്യം രൂപവൽക്കരിക്കൂവെന്നും അദ്ദേഹം വൃക്തമാക്കി

ബദൽ നയത്തോടെ മതേതര ഗവൺമെന്റ് അധികാരത്തിലെത്ത ണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഇതിനു കരുത്തേകാൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിക്കെതിരായ പോരാട്ടമാണ് കോൺഗ്രസും രാഹുൽഗാ ന്ധിയും നടത്തുന്നതെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കൊച്ചിയിൽ പറഞ്ഞു കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് തെറ്റായ സന്ദേശം നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ അതിരൂക്ഷമായി വിമർശിച്ച് ബിജെപിയുടെ ജോലി കേരളത്തിലെ ്ര ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിപിഐഎം അതിന്റെ ചരി ത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിടാൻ പോകുന്നതെന്ന് ബിജെപി സംസ്ഥാന അധൃക്ഷൻ പി

ശ്രീധരൻപിള്ള പറഞ്ഞു എൻഡിഎ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ണൂർ മട്ടന്നൂരിൽ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഐഎം അവരുടെ ചിഹ്ന മായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ടു രേഖപ്പെടുത്തുന്ന അവ സാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും ശ്രീധരൻപിള്ള പറ ഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണി കളുടെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്നലെ പത്രിക നൽകി

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും ന്യൂഡൽഹിയിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി യാണ് പത്രിക പുറത്തിറക്കുക കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ മെയ് രണ്ട് മൂന്ന് തീയതികളിലേക്ക് മാറ്റി

സംസ്ഥാനത്ത് കനത്ത് ചൂട് തുടരുന്നതിനിടെ വയനാട് ഒഴികെ ജില്ലകളിൽ ജാഗ്രതാ നിർദേശം ഇന്ന് കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ഉയർന്ന താപ നിലയിൽ രണ്ട് മുതൽ മൂന്ന് വരെ ഡിഗ്രീ സെൽഷ്യസ് വർദ്ധനയുണ്ടാ കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്

നാലു പേർക്ക് ജില്ലയിൽ സൂര്യാതപമേ റ്റു വേനൽ ശക്തമായ സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് ഇന്നും അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ മീർ മുഹമ്മദലി അറിയിച്ചു നാളെ മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കുമെങ്കിലും കൂട്ടികളെ ക്ലാസിൽ നിന്ന് പുറത്തിറക്കി പ്രവർത്തനങ്ങൾ പാടില്ലെന്നും കൂട്ടികൾ നന്നായി വെള്ളം കൂടിക്കൂ ന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

പാലക്കാട് ജില്ലയിൽ ശുദ്ധജല ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങ ട ളിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെ ബാധിക്കാത്തവിധം ജലവിത രണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അനുമതി നൽകി ജനപ്രതിനിധികളോ രാഷ്ട്രീയ പ്രവർത്തകരോ നേതൃതം നൽകരുതെന്നും ജലവിതരണം വോട്ട് നേടുന്നതിന് ഉപാ ധിയാക്കി മാറ്റരുതെന്നും വ്യവസ്ഥകളോടുകൂടിയാണ് അനുമതി ഭാരതപ്പുഴയിൽ ശുദ്ധജല പദ്ധതികളിൽ ജലം ഉറപ്പാക്കാൻ ഇന്ന് മലമ്പൂഴ ഡാം തുറക്കും കൽപ്പാത്തി പൂഴ വഴി രാവിലെ മുതൽ ജലം തുറന്നുവിടും പുഴകളുടെ തീരത്തു താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു തൊടുപുഴയിൽ മർദ്ദനമേറ്റ കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തൂടരുന്നു

ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അഞ്ചാ മത് പുതൂർ പുരസ്കാരം എം

വാസുദ്ദേവൻ നായർക്ക് ഇന്ന് കോഴി ക്കോട്ട് സമ്മാനിക്കും

വീരേന്ദ്രകുമാറാണ് സമ്മാനി ക്കുക

ഇന്ന് രാജസ്ഥാൻ റോയൽസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും റാഞ്ചിയിൽ മൂന്നാമത് ഫെഡറേഷൻ കപ്പ് യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് മൂന്നാം സ്ഥാനം ബംഗാളും ഝാർഖണ്ഡുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ഇതാദൃമായാണ് യോഗാ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരളം മൂന്നാം സ്ഥാനത്ത് എത്തുന്നത്

അവസാന ദിനത്തിൽ ഇന്ത്യ മൂന്ന് സ്വർണം നേടി ദക്ഷിണ നാവിക കമാന്റ് മേധാവി വൈസ് അഡ്മിറൽ എ

ചൌള ലക്ഷദ്വീപ് മിനിക്കോയ് എന്നിവിടങ്ങളിലെ നാവിക യൂണിറ്റു കൾ സന്ദർശിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ അദ്ദേഹം നാവിക സേനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവിധ വികസന പദ്ധതികൾ സന്ദർശിച്ചു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി മത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനെതിരെ യുഡി എഫ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മറ്റി കൺവീനറും പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റുമായ ബാബു ജോർജ്ജ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും കാണാത്ത തരത്തിൽ നഗ്നമായ തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് സ്ഥാനാർത്ഥി നടത്തുന്നതെന്നും ബാബു ജോർജ്ജ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ ഭിന്നശേഷ്ടി സൌഹൃദ തിരഞ്ഞെടുപ്പ് നട ത്തുന്നതിന്റെ ഭാഗമായി പോളിംഗ് സ്റ്റേഷനിലെത്താൻ വാഹനം ആവ ശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വാഹന സൌകര്യം ഏർപ്പാടാക്കുമെന്ന് ജില്ലാ കലക്ടർ സാംബശിവ റാവു അറിയിച്ചു